ഇന്ന് തുറക്കും സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണം

സർവ്വീസ് ആരംഭിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി വി

തുടക്കം ബി സായ് പ്രണീതും എച്ച് എസ് പ്രണോയും ഇന്ന് മൽസരത്തിനിറങ്ങും

ഇതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്

എല്ലാ മേഖലകളിലും വൈകാതെ തന്നെ ടെലിഫോൺ സേവനം പുനരാരംഭിക്കുമെന്ന് ഗവൺമെന്റ് വക്താവ് രോഹിത് കൻസാൽ അറിയിച്ചു ശ്രീനഗറിലും മറ്റ് ജില്ലാ ആസ്ഥാനങ്ങളിലും കൂടുതൽ സ്വകാരൃ വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങിയതായും ശ്രീ

മേഖലയിലെ സൂരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയ അദ്ദേഹം കൂടുതൽ സ്ഥലങ്ങളിലെ നിയന്ത്രണങ്ങൾ നീക്കുമെന്ന് അറിയിച്ചു ഹജ്ജ് തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചെത്തുന്നവർക്കായി സജ്ജീകരണം ഒരുക്കിയതായി ശ്രീനഗർ ഡിപിഷണൽ കമ്മീഷണർ ബസീർ ഖാൻ പറഞ്ഞു ഇവർക്കായി പ്രത്യേക ബസ്സുകൾ ഒരുക്കിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി

അതിർത്തി ജില്ലയായ്ക്കുള്ളതിയിലെ സുന്ദർബെനി മേഖലയിൽ പ്രകോപനമില്ലാതെ ഇന്ത്യൻ ക്ട്രിസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടി ഉതിർക്കുകയും ഷെല്ലാക്രമണം നടത്തുകയും ചെയ്തതായി പ്രതിരോധ വക്താവ് പറഞ്ഞു ജനവാസ കേന്ദ്രങ്ങൾക്കു നേരെയും പാകിസ്ഥാൻ ആക്രമണം നടത്തി അതേസമയം ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകി ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല

മുത്തലാഖ് നിരോധിക്കാനും അത് ക്രിമിനൽ കുറ്റമാക്കാനുമുള്ള മോദി ഗവൺമെന്റിന്റെ തീരുമാനം മുസ്ലീം സമുദായത്തിന് എതിരല്ലെന്നും മറിച്ച് അവരുടെ ഉന്നമനത്തിനുവേണ്ടിയാണെന്നും ശ്രീ

മുത്തലാഖ് നിരോധനത്തെ സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുത്തലാഖ് ഇസ്ലാം വിരുദ്ധമാണെന്നും നിരവധി ഇസ്താമിക രാജ്യങ്ങൾ വളരെക്കാലം മുമ്പ് തന്നെ ഇത് നിരോധിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

യമുനയിലേയും അനുബന്ധ നദികളിലേയും ജലനിരപ്പ് കണക്കിലെടുത്ത് ഡൽഹി ഹരിയാന പഞ്ചാബ് എന്നിവിടങ്ങളിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഷിംല കുളു എന്നിവിടങ്ങളിൽ കനത്ത മഴയെത്തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി

ട്രാക്കിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് ഷിംലയ്ക്കും കൽക്കയ്ക്കുമിടയിലെ ട്രെയിൻ ഗതാഗതം ഇന്നലെ തടസ്സപ്പെട്ടു ഹരിയാനയിൽ ഏത് അടിയന്തര സഹാചര്യവും നേരിടാൻ ഒരുങ്ങിയിരിക്കണമെന്ന് സേനയ്ക്ക് നിർദ്ദേശം നൽകി

രണ്ട് ദിവസത്തെ ഭൂട്ടാൻ സന്ദർശനം പൂർത്തീയ്ടുക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭൂട്ടാൻ പ്രധാനമന്ത്രി ല്ലേറ്റട്ട് ക്ഷറിൻ വിമാനത്താവളത്തിൽ യാത്ര അയപ്പ് നൽകി കൂടുതൽ വിവരങ്ങളുമായി നന്ദുകുമാർ

പരമ്പരാഗത മേഖലകൾക്ക് അപ്പുറത്ത് നൂതന രംഗങ്ങളിലെ വിശാലമായ സഹകരണമാണ് ഇന്ത്യയും ഭൂട്ടാനും ആഗ്രഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും സന്ദേശമാണ് ഭൂട്ടാൻ ലോകത്തിന് നൽകിയിട്ടുള്ളത്

ലോകത്തെ ഏതു പ്രശ്നങ്ങൾക്കും യുവ മനസ്റ്റുകളിലെ നൂതന ആശയം വഴി പരിഹാരം കാണാൻ കഴിയും നാലായിരത്തിലധികം ഭൂട്ടാൻ വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ പഠനം നടത്തുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യ ഭൂട്ടാൻ ബന്ധം ഇപ്പോൾ കൂടുതൽ ശക്തിപ്പെട്ടിട്ടുണ്ട്

പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖലയിൽ ബഹിരാകാശം വിദ്യാഭ്യാസം ശാസ്ത്രം സാങ്കേതികവിദ്യ നിയമവിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ നിരവധി ധാരണാ പത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു

ജമ്മു കശ്മീരിനെ സംബന്ധിച്ച് കോൺഗ്രസ്സിന് ദിശാബോധം നഷ്ടപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു ദേശസ്നേഹത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല രാഷ്ട്രീയ സാഹചര്യത്തെക്കാൾ ദേശീയ താൽപ്പര്യങ്ങൾക്കാണ് താൻ മുൻഗണന നൽകുന്നതെന്ന് ഭൂപീന്ദർ സിംഗ് ഹൂഡ് പറഞ്ഞു കോൺഗ്രസ്സ് വിട്ട് സ്വതന്ത്ര സമീപനം കൈക്കൊള്ളുമെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് ഹൂഡയുടെ ഈ പരാമർശം ഉണ്ടായത്

ഹൈദരാബാദിൽ ഒരുക്ടിപ്പാതു സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകിയായിരുന്നു അദ്ദേഹം

ഇത് സംബന്ധിച്ച് കേന്ദ്രവ്യോമയാന മന്ത്രിയിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതായി വിദേശകാരൃ സഹമന്ത്രി വി

സംസ്ഥാനത്ത് നിന്ന് നേരിട്ട് യൂറോപ്പിലേക്ക് കണക്ടിവിറ്റി നൽകുന്ന വിമാനസർവ്വീസ് വേണമെന്ന ആവശ്യവും അദ്ദേഹം അംഗീകരിച്ചതായി ശ്രീ

മുൻകാലങ്ങളിൽ നയതന്ത്രത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്ന വിദേശകാരൃവകുപ്പ് ഇപ്പോൾ പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഉയർന്ന പരിഗണനയാണ് നൽകുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു റിക്രൂട്ടിംഗ് ഏജന്റുമാരുടെ ചൂഷണത്തിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ രക്ഷിക്കുന്നതിന് എമിഗ്രേഷൻ നിയമം പരിഷ്ക്കരിക്കുമെന്നും ശ്രീ

മുരളീധരൻ പറഞ്ഞു

എ ഇ സന്ദർശനം കൂടുതൽ വിവരങ്ങളുമായി നന്ദകുമാർ

അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ യു

ഇ സായുധസേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡർ എന്നിവരുമായി ശ്രീ നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും പരസ്പര താൽപ്പര്യമുള്ള ഉഭയകക്ഷി മേഖലാ അന്താരാഷ്ട്ര വിഷയങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യും

ഇ യുടെ ഏറ്റവും വലിയ സിവിലിയൻ ബഹൂമതി ഓർഡർ ഓഫ് സായിദ് ശ്രീ നരേന്ദ്രമോദിക്ക് സമ്മാനിക്കും

മോദിയുടെ കരുത്തുറ്റ നേതൃത്വശേഷി പരിഗണിച്ചാണ് അവാർഡ് സമ്മാന്റിക്കുന്നത് സാംസ്കാരിക സാമ്പത്തിക വാണിജ്യ രംഗങ്ങളിൽ ്യു

ഇ യുമായി ഇന്ത്യയ്ക്ക് ഊഷ്മള ബന്ധമാണുള്ളത്

ഇന്ത്യയുടെ മൂന്നാമത്തെ ഏറ്റവും വലിയ വ്യാപാര ഷ്ക്രാളീയാണ് യു

ബഹ്റിൻ പ്രധാനമന്ത്രിയും കിരീടാവകാശ്ചിയുമാക് ഷെയ്ഖ് ഖലീഫ ബിൻ സാൽമൻ അൽ ഖലീഫയുമായി പ്രധാനമന്ത്രിടു ഉടയ്കക്ഷി ചർച്ച നടത്തും മനാമയിലെ ശ്രീകൃഷ്ണക്ഷേത്രത്തിന്റെ നീപ്പീക്രണ പ്രവർത്തനങ്ങൾക്കും പ്രധാനമന്ത്രി തുടക്കമിടും ബഹ്റിന്റെ വികസനത്തിന് മൂന്നര ലക്ഷം വരുന്ന ഇന്ത്യൻ സമൂഹത്തിന്റെ പങ്ക് നിർണ്ണായകമാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി

പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ്ബി സായ് പ്രണീതും എച്ച്

എച്ച് എസ് പ്രണോയ് ഫിൻലന്റ് താരത്തെ നേരിടും സ്വർണ്ണം തേടി ഇന്ത്യയുടെ പി വി സിന്ധുവും മൽസരത്തിനിറങ്ങും

ഇരു ടീമുകളും രണ്ട് ഗോളുകൾ വീതം നേടി

കമ്പനി ഡയറക്ടർമാരുടെ വീടുകൾ ഉൾപ്പെടെ ഡൽഹിയിലെ നാല് സ്ഥലങ്ങളിൽ സി ബി ഐ ഇന്നലെ റെയ്ക്ക് കൂടത്തിയിരുന്നു

വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞതോടെ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞു